ഇന്ത്യ അതിവേഗം മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

സിബിഐ ആവശ്യം കേരള ഹൈക്കോടതി നിരസിച്ചു

ഐ

ഗ്രാൻഡ് ചലഞ്ചസ് വാർഷിക സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം

വാക്സിൻ വിതരണം കൃത്യമായ രീതിയിൽ ഉറപ്പുവരുത്തുന്നതിന് ഇന്ത്യ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായും അദ്ദേഹം പറഞ്ഞു ഡിജിറ്റൽ ഹെൽത്ത് ഐഡിയിലൂടെ എല്ലാ ജനങ്ങൾക്കും പ്രതിരോധ വാക്സിൻ ഉറപ്പുവരുത്തും ജന കേന്ദ്രീകൃത സമീപനങ്ങളിലൂടെ ആണ് രാജ്യത്തെ കോവിഡ് മരണ്ട് നിരക്ക് കുറച്ചു നിർത്താൻ ആയതെന്നും പ്രധാനമന്ത്രി പ്രെഞ്ഞു

ഏഴര ലക്ഷത്തോളം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്

സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം ഉച്ചസ്ഥായിയിൽ എത്തുന്ന ഇറ് സമയത്തും മരണനിരക്ക് കുറഞ്ഞ നിലയിലാണ് ശാസ്ത്രീയ ്സ്മീപനങ്ങളിലൂടെ ആണ് മഹാമാരിയെ സംസ്ഥാനം ചെറുത്ത് നീൽക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രോഗം ഉച്ചസ്ഥായിയിൽ എത്തുന്ന അവസ്ഥ പരമാവധി വൈകിപ്പിക്കുക എന്ന സമീപനമാണ് സംസ്ഥാനം സ്വീകരിച്ചത് ഇതുമൂലം ആരോഗൃ സംവിധാനങ്ങളെ ശാക്തീകരിക്കുന്നതിനും രോഗത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിനും സമയം ലഭിച്ചതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി

അതേസമയം ഇറ്റലി ഉൾപ്പെടെയുള്ള രാജൃങ്ങളിലെ കോവിഡിന്റെ രണ്ടാംവരവ് കനത്ത ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്

അരി ഗോതമ്പ് പഞ്ചസാര എന്നിവയാണ് പ്രധാനമാട്യും ് ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ കയറ്റുമിതി ചെയ്തത്

ഈ വർഷം അവസാനത്തോടെ ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിലുമായാണ് നാവികാഭ്യാസം നടക്കുക നാവികസേനകൾ തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്താനുള്ള സംയുക്ത അഭ്യാസം ഇത്തവണ സമ്പർക്കമില്ലാത്ത രീതിയിലാണ് സംഘടിപ്പിക്കുന്നത്

ഇവരുടെ പക്കൽ നിന്നും എ

ഈ ദിനത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷ്വും സമൃദ്ധിയും ഭാഗ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രധാനമന്ത്രി ആശംസിച്ചു

വാൽമീകി നഗർ ലോക്സഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കും

ഇക്കാരൃത്തിൽ എതിർ സത്യവാങ്മൂലം സമർപ്പിക്കാത്ത സിബിഐ നിലപാടിനെ ഹൈക്കോടതി വിമർശിച്ചു എന്നാൽ സത്യവാങ്മൂലം ഡയറക്ടറുടെ പരിശോധനയ്ക്ക് അയച്ചതായി സി ബി

എന്നാൽ മാധ്യമങ്ങളിൽ വാർത്ത വരാനാണ് സി ബി ഐ ശ്രമിക്കുന്നതെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ ബോധിപ്പിച്ചു

തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ വ്യവസായ മന്ത്രി ഇ

ശ്രീലങ്ക ബംഗ്ലാദേശ് തൂടങ്ങിയ അയൽരാജൃങ്ങളിലേക്കും നീം ജി ഓട്ടോകൾ കയറ്റി അയക്കാൻ ചർച്ച നടക്കുന്നുണ്ട്

കർഷകർക്ക് മതിയായ സഹായധനം നൽകാനും പ്രദേശത്തെ കുടുംബങ്ങൾക്ക് സൌജന്യ റേഷനും അവശ്യ സാധനങ്ങളും വിതരണം ചെയ്യാനും അദ്ദേഹം നിർദ്ദേശം നൽകി

അമേരിക്കയിലെ പ്രധാന സംസ്ഥാനങ്ങളിൽ ഒന്നായ ഫ്ലോറിഡയിൽ മുന്നിലെത്താനായില്ലെങ്കിൽ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപിന്റെ വിജയപ്രതീക്ഷയ്ക്ക് തിരിച്ചടിയാവുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് പ്രചാരണത്തിന് രണ്ടാഴ്ച മാത്രം ശേഷിക്കെ പ്രസിഡന്റ് സ്ഥാനാർത്ഥികളായ ട്രംപും ജോ ബൈഡനും വ്യാഴാഴ്ച ടെന്നസിയിൽ അവസാനഘട്ട സംവാദത്തിൽ ഏർപ്പെടും

എല്ലിൽ ഇന്ന് കിങ്സ് ഇലവൻ പഞ്ചാബ് ഡൽഹി ക്യാപിറ്റൽസുമായി ഏറ്റുമുട്ടും

ചെന്നൈ സൂപ്പർ കിങ്സിനെ ഏഴ് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ വിജയം നേടിയത്

ഭാരത് മാല പരിയോജനയുടെ കീഴിൽ നിർമ്മിക്കുന്ന പാർക്ക് അസം ജനതയ്ക്ക് വ്യോമ റോഡ് റെയിൽ ജലഗതാഗതത്തിന് നേരിട്ടുള്ള അവസരമൊരുക്കും

കെ

എ മുഖേന നടന്ന സാമ്പത്തിക ഇടപാടുകളിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടായിരുന്നു ചോദ്യം ചെയ്യൽ